രാജ്യത്തെ കർഷകർക്ക് ആശ്വാസപദ്ധതികൾ ഉറപ്പാക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു

കേരളത്തിൽ അടുത്ത മാസവും സ്കൂളുകൾ തുറക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഹോമിയോപ്പതി ദേശീയ കമ്മീഷൻ ബില്ലും ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ദേശീയ കമ്മീഷൻ ബില്ലും ലോക്സഭ പാസാക്കി രാജൃസഭ ഈ ബില്ലുകൾ നേരത്തെ പാസാക്കിയിരുന്നു

രാജ്യസഭാ ഉപാധ്യക്ഷനായി ഹരിവംശ് നാരായൺ സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടതായി അധ്യക്ഷൻ എം

കോവിഡ് വ്യാപനത്തിന്റെന്റ പശ്ചാത്തലത്തിൽ രാവിലെയും വൈകിട്ടുമായാണ് ലോക്സഭയും രാജ്യസഭയും ചേരുന്നത് വിശദവിവരങ്ങളുമായി കരോൾ അബ്രഹാം

മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് ജസ്രാജ് മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അജിത് ജോഗി മധ്യപ്രദേശ് ഗവർണർ ലാൽജി ടണ്ടൻ ഉത്തർപ്രദേശ് മന്ത്രിമാരായ കമൽ റാണി ചേതൻ ചൌഹാൻ മുൻ കേന്ദ്രമന്ത്രി രഘുവംശ പ്രസാദ് എന്നിവർക്കാണ് സഭ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത്

അസാധാരണസാഹചര്യം കണക്കിലെടുത്ത് ശൂന്യവേളയുടെ ദൈർഘ്യം കുറയ്ക്കാനും ചോദ്യോത്തരവേള ഒഴിവാക്കാൻ ധാരണയായിരുന്നതായും ഇത് പാലിക്കണമെന്നും ലോക്സഭയിൽ ഇത് സംബന്ധിച്ച നോട്ടീസുകൾ പരിഗണിക്കവെ സ്പീക്കർ ഓം ബിർള പറഞ്ഞു എല്ലാ വിഷയങ്ങളിലും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാർലമെൻറി കാര്യമന്ത്രി പ്രഹ്ഗാദ് ജോഷിപറഞ്ഞു സർക്കാരിനെ ചോദൃം ചെയ്യാൻ നിരവധി മാർഗങ്ങളുണ്ടെന്നും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു

ചോദ്യോത്തരവേള റദ്ദാക്കുന്നതിനെ പ്രതിപക്ഷനേതാവ് അധീർ രഞ്ജൻ ചൌധരി എ

വിവിധ വിഷ്യങ്ങളിൽ ഡി എം കെ സി

ഐ എം കോൺഗ്രസ് ആർ

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇരുസഭകളിലും എം പിമാർക്കായി ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ന്യൂസ് ഡസ്ക് ആകാശവാണി

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചോദ്യോത്തര വേളയും സ്ഥകാര്യ പ്രമേയങ്ങളും ഒഴിവാക്കുന്നതിനുള്ള പ്രമേയങ്ങൾ കേന്ദ്രമന്ത്രി പ്രഹ്നാദ് ജോഷി അവതരിപ്പിച്ചു

തിരഞ്ഞെടുക്കപ്പെട്ട ചില എം പിമാർ കഴിഞ്ഞ മാസം രാജ്യസഭ അധ്യക്ഷൻ വെങ്കയ്യനായിഡുവിന്റെ ചേംബറിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ബാക്കിയുള്ളവരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്

അംഗങ്ങളെ അഭിനന്ദിച്ച് സംസാരിക്കുകയായിരുന്നു

കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

പകർന്നുകൊണ്ടുള്ള സന്ദേശം പാർലമെന്റിൽ നിന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു

ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഉപധനാഭ്യർത്ഥനകൾ സഭയിൽ അവതരിപ്പിച്ചത് നടപ്പാക്കുമ്പോഴുണ്ടാകുന്ന വൃത്യാസമാണ് ഉപധനാഭ്യർത്ഥനയ്ക്കായി സഭക്ക് മുമ്പാകെ എത്തിയത്

രോഗവ്യാപനവും മരണവും നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞതായും കോവിഡ് പ്രതിരോധത്തെ കുറിച്ച് ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു

കൃാബിനറ്റ് സെക്രട്ടറിയും ദൈനംദിനം സ്ഥിതി വിലയിരുത്തി വേണ്ട തീരുമാനങ്ങൾ സ്വീകരിച്ചു വരുന്നതായും ആരോഗ്യമന്ത്രി അറിയിച്ചു

ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള മഹാരാഷ്ട്രയിൽ മൂന്ന് ലക്ഷത്തോളം പേരാണ് ചികിത്സയിലുള്ളത്

രോഗബാധിതരുടെ കാര്യത്തിൽ കർണാടക തലസ്ഥാനം ബംഗളൂരു മുംബൈയെയും മറികടന്നു

ഇതുവരെ മൂന്ന് കോടിയോളം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്

കേന്ദ്രസർക്കാരും ഇത് സംബന്ധിച്ച നിർദേശം നൽകിയിട്ടില്ല

തിരിച്ചെത്തുന്ന അന്യസംസ്ഥാനതൊഴിലാളികൾക്ക് താമസസൌകര്യം ഒരുക്കേണ്ടത് ബന്ധപ്പെട്ട ഏജന്റുമാരുടെ ബാധ്യതയാണ്

സംസ്ഥാനത്ത് ക്രമസമാധാനപ്രശ്നം തകർക്കാനുള്ള ശ്രമം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് ഇന്നലെ പ്രതിഷേധക്കാർ കാർ കുറുകെ നിർത്തി മന്ത്രി കെ

അപകടമുണ്ടാക്കുന്നതും ആഭാസകരവുമായ സമരമുറകൾ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ഒന്നാംഘട്ടം വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പ്രാഥമികാരാഗൃ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി താലൂക്ക്തലം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൌകര്യം വന്നു

കരിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സർക്കാരിനെ എവിടെ കരിവാരിതേക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്താൽ ലൈഫ്മിഷൻ തട്ടിപ്പ് കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ

സർക്കാരിനെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാതെ വന്നപ്പോൾ അക്രമ സമരത്തിലൂടെ അരാജകത്വം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷ എൽ

വിജയരാഘവൻ പറഞ്ഞു

ഇതിൽ നാല് പദ്ധതികൾ ജല വിതരണവുമായും രണ്ടെണ്ണം മലിനജല സംസ്കരണവുമാ്യും ഒരെണ്ണം നദീതട വികസനവുമായും ബന്ധപ്പെട്ടതാണ്

ആരോഗ്യ കാരണങ്ങളെ തുടർന്ന് മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ രാജിവെച്ചതിനെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ്